ആക്രമണത്തീന് ശക്തമായ മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ ന് നെഹ്രുവിന്റെ ഓർമ്മയിൽ രാജ്യമിന്ന് ശിശുദിനം ആഘോഷിക്കുന്നു

അധ്യക്ഷനായി ഡോ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റു

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ ദീപാവലി ആഘോഷിക്കുന്നത് മോശം അന്തരീക്ഷസ്ഥിതി കൂടി കണക്കിലെടുത്ത് ഡൽഹിയടക്കം പല സംസ്ഥാനങ്ങളിലും പടക്കങ്ങൾ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട് എല്ലാ പൌരന്മാർക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദീപാവലി ആശംസകൾ നേർന്നു

രാജസ്ഥാനിലെ ജയ് സാൽമീറിൽ സൈനികരോടൊപ്പം ദീപാവലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ മോദി

രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന സൈനികർക്ക് എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ ദീപാവലി ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

രണ്ടടി ദൂരവും മാസ്ക്ടീർൻ ആവശ്യവും എന്ന പ്രതിജ്ഞ ഈ ദീപാവലി വേളയിൽ എടുക്കണമെന്നും പാലിക്കണമെന്നും അദ്ദേഹം ആഭ്യൂർത്ഥിച്ചു

ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്നത്തെ കുട്ടികളാണ് രാജ്യത്തിന്റെ ഭാവി എന്നും അവരാണ് സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും നെഹ്റു വിശ്വസിച്ചിരുന്നു

രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വിനീതമായ പ്രണാമങ്ങളർപ്പിക്കുന്നുവെന്ന് ശ്രീ നരേന്ദ്ര മോദി ട്വിറ്ററിൽ കുറിച്ചു

വിശദാംശങ്ങളുമായി ലിൻസ സിറാജ്

അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ടെസ്റ്റ് ട്രാക്ക് ട്രീറ്റ് സമീപനമാണ് വളരെ താഴ്ന്ന കോവിഡ് മരണനിരക്കിന് കാരണം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഒന്നരക്കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

പ്രമേഹരോഗികളെ പിന്തുണ്യ്ക്കുന്നതിന് നേഴ്സുമാരുടെ സംഭാവന പരിഗണിച്ച് ഇത്ത്വണത്തെ ലോക പ്രമേഹദിനം നേഴ് സുമാർക്കായാണ് സമ്ർപ്പിച്ചിരിക്കുന്നത്

ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച സഹകരണ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രാജ്യം സഹകരണ വാരം ആഘോഷിക്കുന്നത്

നാളെ പറ്റ്നയിൽ ചേരുന്ന എൻ

എ സാമാജികരുടെ യോഗം സർക്കാർ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊള്ളും

ഡി എ ഘടകകക്ഷികളുടെ യോഗം കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറിന്റെ വസതിയിൽ ചേർന്നിരുന്നു നിതീഷ് കുമാറിന്റെ ജെഡിയു ബിജെപി ഹിന്ദുസ്ഥാനി അവാ മോർച്ച വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്നിവരുൾപ്പെടുന്ന എൻ ഡി

വിജയിച്ച ഏക സ്വതന്ത്ര സ്ഥാനാർത്ഥി സുമന്ത് സിങ്ങും എൻ ഡി എ യ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്

വിദേശകാര്യ മന്ത്രി എസ്

ഗ്രാമീണ സമ്പദ് വൃവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷിക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് യോഗത്തിൽ മന്ത്രിമാർ വൃക്തമാക്കി പുതിയ കാർഷിക നിയമങ്ങൾ കർഷകർക്ക് വിപണി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്യം നൽകുന്നതിനൊപ്പം കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് മന്ത്രിമാർ കർഷകർക്ക് ഉറപ്പ് നൽകി

ഈ കാർഡുകൾ മുഖേന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാകും ഇന്നലെ ഭുവനേശ്വറിൽ നടന്ന ചടങ്ങിൽ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി ഓൺലൈൻ സേവനങ്ങളുടെ ഉദ്ഘാടനം ഒഡിഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് നിർവഹിച്ചു

ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി പുകവലി വിരുദ്ധ പ്രചാരണവും ഉത്തര കൊറിയയിൽ ശക്തമാക്കി

മൂന്ന് അമേരിക്കക്കാരും ഒരു ജെപ്പാൻ സ്വദേശിയുമാണ് സംഘത്തിലുള്ളത്

ഇതോടെ വിവിധ ഗ്രൂപ്പുകളിൽ മത്സരിക്കാനുള്ള ടീമുകൾ തീരുമാനിക്കപ്പെട്ടു

നിലവിലെ ചാമ്പ്യൻമാരായ പോർച്ചുഗലും ലോകചാമ്പ്യൻമാരായ ഫ്രാൻസും ശക്തരായ ജർമനിയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എഫ് ആണ് ഇത്തവണ ശ്രദ്ധാകേന്ദ്രം ഈ വർഷം നടക്കേണ്ട ടൂർണമെന്റ് കോവിഡ് പശ്ചാത്തലത്തിലാണ് അടുത്ത വർഷത്തേക്ക് മാറ്റിയത്

ഇ യിലും എൻ